സംവദിക്കുന്ന പരീക്ഷാ പെ ചർച്ച അൽപസമയത്തിനകം

നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ

സംസ്ഥാനത്ത് നിയ്ക്ത്ര്ണങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് എസ് എസ് എൽ സി

പരീക്ഷകൾ നാളെ മുതൽ

എൽ

തുടക്കം പരീക്ഷാ പേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഏഴിന് രാജ്യത്തെ വിദ്യാർത്ഥികളുമായി പരീക്ഷാ പേ ചർച്ചയിലൂടെ ആശയവിനിമയം നടത്തും

പരീക്ഷ ആയാസരഹിതവും ലളിതവുമാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അധ്യാപകരുമായും പങ്കുവയ്ക്കും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകും പരീക്ഷാ സമയത്തെ പിരിമുറുക്കം ഇല്ലാതാക്കി വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും മനോവീര്യവും വർദ്ധിപ്പിക്കാൻ ചർച്ച പ്രയോജനകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു

വിശദാംശങ്ങളുമായി ലിഖിത

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് വീണ്ടും കൂടി വരുന്ന സാഹചരൃത്തിൽ അടിസ്ഥാന നിയന്ത്രണങ്ങളിലേക്ക് തിരിച്ചു പോവുന്നതിനുള്ള പ്രചരണം ശക്തമാക്കുമെന്ന് മന്ത്രി കെ

ജനങ്ങൾ കൂടുതൽ ജാഗത തുടരേണ്ടതുണ്ടെന്ന് മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

കോവിഡുമായി ബ്ലസ്പ്പെട്ട് നാളെ പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെന്നുും മന്ത്രി പറഞ്ഞു

വാക്സീൻ എടുക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മൂന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കളക്ട്ടർ കോവിഡ് കോവിഡ് വ്യാപനം വർധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത ഒരാഴ്ച കർശന ജാഗ്രത വേണമെന്നു ജില്ലാ കളക്ടർ ഡോ

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പല ഭാഗങ്ങളിലും ആൾക്കൂട്ടമുണ്ടായ സാഹചര്യത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങ ളിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ആർ

കോവിഡ് സാഹചരൃ ങ്ങൾ വിലയിരുത്താൻ ചേർന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗ ത്തിലാണു തീരുമാനങ്ങൾ ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ശ ക്തമാക്കാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്കും പൊലീസിനും നിർദേ ശം നൽകിയിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളോടും നിർദേശ ങ്ങളോടും പൊതുജനങ്ങൾ പൂർണമായി സഹകരിക്കണമെന്നും ക ളക്ടർ അഭ്യർഥിച്ചു

ഇതിനെതിരായ ഹർജി കോടതി തള്ളി മാസ്ക് വൈറസിനെതിരായ സുരക്ഷാ കവചമാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വൃക്തമാക്കി

സംസ്ഥാനത്തെ എസ്

സി

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ നട്ടത്തൂന്നത്

എസ് എൽ സി

തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ആരംഭിക്കും

തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ ഉള്ള കാരണം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഹർജികൾ മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും

വാക്സിനേഷൻ യജ്ഞം വ്യാപകമായതോടെ ആഗോളസമ്പദ്ഘടന വളർച്ചയുടെ പാതയിൽ എത്തിയിട്ടുണ്ടെന്ന് സമിതി വിലയിരുത്തി

ഡി എഫിന് തുടർ ഭരണം ഉണ്ടാകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മന്ത്രി ജി

ഇടതുപക്ഷത്തിന് എന്ത്രായാലും ക്ഷീണമാകില്ലെന്നും അദ്ദേഹം പൂറിഞ്ഞു രമേശ് ചെന്നിത്തല അഞ്ചുവർഷക്കാലത്തെടുഎൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരെയുള്ള് ജനവികാരം യുഡിഎഫിന് മികച്ച ഭൂരിപക്ഷം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് പറഞ്ഞു പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും ശരിയാണ് എന്ന് ജനങ്ങൾക്കറിയാം ഇതിനെ സാധൂകരിക്കുന്ന ജനവികാരമാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്

അവിടെ റീ പോളിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടു ണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കൃഷ്ണദാസ് കേരളത്തിലെ നാല്പത്തിലധികം മണ്ഡലങ്ങളിൽ എൻഡിഎയെ പരാജയപ്പെടുത്താൻ സിപിഎമ്മും കോൺഗ്രസും പരസ്പരം വോട്ടുമറിച്ചിട്ടുണ്ടെന്ന് എൻഡിഎ സംസ്ഥാന ചെയർമാൻ പി

നിലവിലെ എൻഡിഎയുടെ അക്കൌണ്ട് ക്ലോസ് ചെയ്യുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മഞ്ചേശ്വരത്ത് സിപിഎം വോട്ടുമറിച്ചെന്ന കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പ്രസ്താവനകൾ ഈ അട്ടിമറിക്ക് തെളിവാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു

കണ്ണൂർ കൂത്തുപറമ്പിൽ മുസ്തീം ലീഗ് പ്രവർത്തകൻ മൻസൂർ വെട്ടേറ്റു കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് നിഷ്ക്രിയരായതായും അദ്ദേഹം ആരോപിച്ചു സിപിഐ എം അക്രമം അഴിച്ചുവിടുകയാണെന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും യു ഡി

കുറ്റ്സിളീകൾക്കെതിരെ കർശന നടപടി വേണമെന്നും ശ്രീ ര്മേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

എതിർക്കുന്നവരെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഉമ്മൻ ചാണ്ടി പ്രസ്താവനയിൽ പറഞ്ഞു

കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹസ്സൻ പ്രസ്താവനയിൽ പറഞ്ഞു

ജെ

നിലവിലെ ചാമ്പ്യൻ മുംബൈ ഇന്ത്യൻസും ബംഗളൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിൽ ചെന്നൈയിലാണ് ആദ്യമത്സരം

മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് കൊൽക്കത്ത ബംഗളൂരു എന്നിആറ് വേദികളിലാണ് മത്സരം

തേക്കടി പെരിയാർ ഹൌ്സ് പെരിയാർ ടൈഗർ റിസർവിൽ നട ക്കുന്ന സിറ്റിംഗിൽ വേതന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ക്ലെയിം ഉള്ളവർക്ക് തെളിവുകൾ സഹിതം ക്ലെയിം ഫയൽ ചെയ്യാം

സ്വർണവിലയിൽ വർദ്ധന